ഗ്രൂപ്പ് ബി സി ഡി ജീവനക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹാജരായാൽ മതി

സംസ്ഥാനത്ത് എസ്

എൽ സി ഉൾപ്പെടെ എല്ലാ പ് പരീക്ഷകളും മാറ്റി വച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും പ് കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഭക്ഷ്യ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ സ്പെഷ്യൽ സ്കാഡുകൾ രൂപീകരിച്ചു

പ് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പി

ബാനർജി അന്തരിച്ചു

നിലവിലെ എല്ലാ ഗവേഷണ പ്രവർത്തനങ്ങളും സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു വ്യക്തമായ ശാസ്ത്ര ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊറോണ വൈറസ് പരിശോധന നടക്കുന്നതെന്ന് ശ്രീ ഹർഷ് വർദ്ധൻ ലോക്സഭയെ അറിയിച്ചു അതേസമയം കൊറോണ വൈറസ് ബാധ ഗുരുതരമാണെങ്കിലും പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുന്ന് ഉറപ്പാക്കണ്മെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു

പൊതു ജനങ്ങളും പ്രാദേശിക അധികൃതരും രോഗം പടരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

സർക്കാർ അവധി കൊറോണ പ്രതിരോധ നടപടികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഓഫിസുകളിൽ ജോലിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു

ഗ്രൂപ്പ് ബി സി ഡി ജീവനക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജോലിക്ക് ഹാജരായാൽ മതി

കേന്ദ്ര ജീവനക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകൾക്ക് സമാനമായ നടപടിയാണ് സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്

എസ് എൽ

കൊറോണ രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ പരിക്ഷകൾ മാറ്റിവച്ചത്

ഭക്ഷ്യോൽപാദന വിതരണ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് ആശുപത്രികൾ ബസ് സ്റ്റാന്റുകൾ റയിൽവേ ് സ്റ്റേഷനുകൾ തുടങ്ങിയവയുടെ സമീപമുള്ള ബേക്കറികൾ റസ്റ്റോറന്റുകൾ എന്നീ സ്ഥാപനങ്ങൾ സ്പെഷ്യൽ സ്കാഡുകൾ പരിശോധിച്ച് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കും പരിശോധനയിൽ വ്യക്തി ശുചിത്വം ഹാന്റ് സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ് എന്നിവയുടെ ലഭ്യതയും ഉറപ്പ് വരുത്തുകയും ചെയ്യും

സജ്ജീകരണങ്ങളെ കുറിച്ച് ഭക്ഷ്യ സുരിക്ഷാ വകുപ്പ് കമ്മീഷണർ എ

കക്ഷികൾ കേസ് കാര്യങ്ങൾക്കായി എത്തേതില്ല അഭിഭാഷകർ ചുമതലകൾ നിർവഹിക്കും ആലപ്പുഴ ജില്ലാ കോടതിയിൽ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി

സുനിൽ കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്

മുഴുവൻ ആശുപത്രികളിലും പകർച്ചവ്യാധി നിയന്ത്രണ സഹായ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സന്ദർശകരേയും നിയന്ത്രിക്കണം മുഴുവൻ ഡോക്ടർമാരും നേഴ്സുമാരും കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു

അപകടങ്ങളിൽ മുഖത്തും പല്ലുകൾക്കും സംഭവിക്കുന്ന പരിക്കുകൾ പല്ലുകളിലും താടിയെല്ലുകളിലും ഉണ്ടാകുന്ന കടുത്ത അണുബാധ അസഹ്യമായ പല്ലു പേദന എന്നിവയാണ് അടിയന്തിര ചികിത്സ വേണ്ടവയായി കണക്കാക്കപ്പെടുന്നത്

യാത്രികരുടെ ശരീരോക്ഷ്മാവ് പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ബാനർജി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസവു മുൻ ക്യാപ്റ്റനും പരിശീലകനുമായ പി

ബാനർജി കൊൽക്കത്തയിൽ അന്തരിച്ചു

ശ്വാസകോശ അസുഖത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു

നിരീക്ഷണം കൊറോണ സ്ഥിരീകരിച്ച രോഗിയുമായി സമ്പർക്കം പുലർത്തിയ കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എ

കൊറോണ പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കിയതിന്റെ ഭാഗമായാണ് എം എൽ എ

കൊറോണ സ്ഥിരീകരിച്ച കാസർഗോഡ് താലൂക്കിലെ യുവാവ് വിവാഹ ചടങ്ങിലും ഫുട്ബോൾ മത്സരത്തിലും പങ്കെടുത്തതായി കണ്ടെത്തി

എൽ